കോവിഡ് വാക്സിൻ രജിസ്ട്രേഷ്സ് ഇന്ന് തുടക്കം

നൽകുമെന്ന് കേന്ദ്രം

രോഗ വ്യാപനം ഉയർത്തുമെന്ന് ആശങ്ക കൂടുതൽ പ്രദേശങ്ങളിൽ നിയന്ത്രണങ്ങൾ

രണ്ടുപേർ പിടിയിൽ ഐ

സൺ റൈസേഴ്സ് ഹൈദരാബാദ് മത്സരം

ഇവർക്ക് വാക്സിൻ യജ്ഞത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ അടുത്തമാസം ഒന്ന് മുതൽ കുത്തിവയ്പ്പ് നൽകിത്തുടങ്ങും വൈകിട്ട് നാല് മുതൽ കോവിൻ പോർട്ടലിലോ ആരോഗ്യസേതു ആപ്പ് വഴിയോ രജിസ്റ്റർ ചെയ്യാം

വാക്സിൻ വാക്സിൻ ക്ഷാമം തുടരുന്നതിനിടെ സംസ്ഥാനത്ത് ഇന്നലെ കൂടുതൽ കോവിഡ് വാക്സിൻ എത്തി

ജനിതകമാറ്റം സംഭവിച്ച മൂന്ന് വൈറസുകളെക്കുറിച്ച് നടത്തിയ പഠനത്തിൽ ഇവ രോഗ വ്യാപനത്തിന്റെ വേഗത കൂട്ടുന്നതായാണ് കണ്ടെത്തൽ

ജനിതകമാറ്റം വന്ന വൈറസുകളിൽ വാക്സിൻ ഫലപ്രദമാണോ എന്ന് വിലയിരുത്തേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പൊതുയിടങ്ങളിലെ രോഗപരിശോധന ഉൾപ്പെടെ പ്രതിരോധ മാർഗ്ഗങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടി വരുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു

നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിലും വെമ്പായം ആനാട് പള്ളിക്കൽ പുല്ലമ്പാറ പോത്തൻകോട് കാഞ്ഞിരംകുളം കുളത്തൂർ പഞ്ചായത്തുകളിലുമാണ് നിയന്ത്രണങ്ങൾ

ഒളവണ്ണ വേളം പെരുവയൽ ചേമഞ്ചേരി കടലുണ്ടി മാവൂർ ഫറോക്ക് പനങ്ങാട് ഉള്ളിയേരി കക്കോടി എന്നീ തദ്ദേശ സ്ഥാപനങ്ങളിലാണ് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്

ഇവിടങ്ങളിൽ ഒരാഴ്ചത്തേക്ക് ശക്തമായ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കും

ര്യോഗ്ല് പ്രതിരോധ ശേഷി വർധിപ്പിക്കുന്നതിനുള്ള ഇമ്മ്യൂണ്ടിറ്റീംബൂസ്റ്റർ മരുന്ന് എല്ലാ സർക്കാർ ഹോമിയോ ഡ്രിസ്ട്പെൻസറികളിലും ആവശ്യത്തിന് സ്റ്റോക്ക് ഉറപ്പൂക്കിയതായും രോഗവ്യാപനം കൂടുതലായുള്ള പഞ്ചായിത്തുകളിൽ അതത് തദ്ദേശ സ്ഥാപനത്തിന്റെ സഹായ്യത്തോടെ ബൂസ്റ്റർ മരുന്ന് വിതരണം വൃാപകമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും ഹോമിയോപ്പതി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ആലപ്പുഴ കോവിഡ് പ്രതിരോധം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങ ളിലേക്ക് അധികമായി അധ്യാപകരെ നിയമിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായി

ആർ പരിശോധനയ്ക്ക് സൌകര്യമൊരുക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയ്ക്കുള്ള ഉദ്യോഗസ്ഥർ സ്ഥാനാർത്ഥികൾ കൌണ്ടിംഗ് ഏജന്റുമാർ മാധ്യമ പ്രതിനിധികൾ എന്നിവർക്കാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് പ്രവേശനമുള്ളത് കണ്ണൂർ വിയ്യൂർ ജയിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാർക്കും ജീവനക്കാർക്കുമു ണ്ടായ കോവിഡ് ബാധയിൽ ആശങ്ക വേണ്ടെന്ന് ജയിൽ ഡി ഐ

വകുപ്പ്തലത്തിൽ നടത്തിവരുന്ന പരിശോധനയുടെ ഭാഗമായാണ് ജയിലിൽ ആർ

സി കൌൺസിലറുടെ സേവനം ലഭിക്കും കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സ്ന്ദർശകരെ അനുവദിക്കില്ലെന്ന് ഡയറക്ടർ അറിയിച്ചു

എസ് ആകാശവാണി വാർത്തകളോട്

സി യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞ സാഹചര്യത്തിൽ കെ എസ് ആർ

കഴിഞ്ഞ തിങ്കളാഴ്ച നടത്തിയ സർവ്വീസുകളുടെ പകുതിയായിരിക്കും ഇനി തിങ്കൾ മുതൽ വെള്ളി വരെ ഉണ്ടാവുക ശനി ഞായർ ദിവസങ്ങളിൽ കഴിഞ്ഞ ഞായറാഴ്ച നടത്തിയതിന്റെ പകുതി സർവ്വീസുകളേ ഉണ്ടാവൂ

വാളയാർ പാലക്കാട് സ്വദേശികളായ യുവാക്കളിൽ നിന്നാണ് പിക്കപ്പ് വാനിൽ കടത്താൻ ശ്രമിച്ച കഞ്ചാവ് കണ്ടെയ്നർ റോഡിൽ വച്ച് പിടികൂടിയത് ഹൈദരാബ്ുദ്ദിൽ നിന്ന് മാങ്ങാ കൊണ്ടുവരുന്നതിന്റെ മറവിലാണ് കണ്ടുപ്പ്പ് കടത്താൻ ശ്രമിച്ചത്

കേരള സാഹിത്യ അക്കാദമി അവാർഡ് ബാലസാഹിത്യ മേഖലയിലെ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്ക്കാരം തുടങ്ങി നിരവധി അവാർഡുകൾ നേടി

എൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺ റൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും

ഇന്നലെ അഹമ്മദാബാദിൽ നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പരാജയപ്പെടുത്തി

ക്ഷേത്ര അടിയന്തിരക്കാരായ ഊരാളന്മാർക്കു കണക്കപ്പിള്ള സമുദായി എന്നിവരുടെ സാന്നിധൃത്തില്ലാണ് ചടങ്ങ്